ദേശീയ പാതകളിലെ ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് സംവിധാനം ഇന്ന് നിലവിൽ വരും

ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാലാംഘട്ട വോട്ടെടുപ്പ് നാളെ

നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഡി ജി

എല്ലാ ബൂത്തുകളിലും ദേശീയ ഫ്റ്ത്ത് അതോറിറ്റി ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനത്തിന്റെ ഗ്ലാസിൽ പതിച്ചിരിക്കുന്ന ഫാസ്ടാഗ് ് സ്റ്റിക്കറിൽ നിന്നും റേഡിയോ ഫ്രീക്വൻസി വഴി ടോൾ നിക്ഷേപം നടക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വോട്ടിംഗ് സാമഗ്രികളുമായി പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് തിരിച്ചു

വോയ്സ് പ്രതിഷേധപ്രകടനങ്ങളിൽ കുട്ടികളെ പങ്കാളികളാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സംസ്ഥാനങ്ങളിലെയും ഡി ജി പിമാരോട് ദേശീയ ബാലാവകാശ കമ്മീഷൻ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കല്ലേറ് അക്രമാസക്തമായ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ തുടങ്ങി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് കമ്മീഷഷന്റെ ഇടപെടൽ

നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഉപയോഗിക്കുന്ന സംഘങ്ങൾക്കും വൃക്തികൾക്കും ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ പിഴയും ലഭിക്കുമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്

ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്ക്കാരങ്ങൾ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഊർജ്ജ സംരക്ഷണത്തിനായി ബ്യൂറോ ഓഫ് എനർജി എഫിഷൻസി നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു

നാഗ്പൂർ ഹൈകോർട്ട് ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കകയായിരുന്നു അദ്ദേഹം

ക്ഷ്യൻ നീതിന്യായ വൃസ്ഥയിൽ മനുഷ്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തീരുമാനം എടുക്കുന്നതിന് പകരം വയ്ക്കാൻ മറ്റൊരു സംവിക്ട്രൂന്ത്തിനുമാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി

ഗുവാഹാതിയിലെയും ദിബ്രുഘട്ടിലെ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ കർഫ്യൂവിൽ ഇന്നലെ ഇളവ് വരുത്തിയിരുന്നു അവിശ്യസാധനങ്ങൾ വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും ജനങ്ങളും വാഹനങ്ങളും കർഫ്യൂവിൽ ഇളവ് വരുത്തിയപ്പോൾ റോഡിലിറങ്ങി

മേഘാലയ ഡെമോക്രാറ്റിക് സംഖ്യത്തിന്റെ ചേയർമാനും മുഖ്യമന്ത്രിയുമായ കോൺറാഡ് കെ സാങ്മയുടെ നേതൃത്വത്തിലുള്ള ഉന്നതല സംഘം കേന്ദ്ര ആഭ്യന്തമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി

ചെന്നൈയിൽ രണ്ടുദിവസമായി പെയ്യുന്ന മഴ ഇന്നും തുടർന്നാൽ മത്സരം വെട്ടിച്ചുരുക്കേണ്ടി വരും ചെപ്പോക്ക് എം

എം നിലയങ്ങളിൽ മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം

ന്യഡ് സെസ്ക് ആകാശവാണി

ിപിയിലെ ജയന്ത് പാട്ടീലിന് ജലവിഭവ വകുപ്പും ഛഗൻ ദുജ്ബലിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും നേരത്തെ പാട്ടീലിന് ധനവും ആസൂത്രണവും ഭവനം നൽകി ആരോഗ്യം സഹകരണം ഭക്ഷ്യം തൊഴിൽ ന്യൂനപക്ഷ വകുപ്പുകളാണ് നൽകിയിരുന്നത് ദുജ്ബലിന് ജലവിഭവം ഗ്രാമവികസനം സാമൂഹ്യനീതി എക്സൈസ് ഭക്ഷ്യവകുപ്പുകളാണ് നൽക്കിയിരുന്നത്

എസ് ഐ

ജി സി

ഡൽഹിയിലെ അനധികൃത കോളനി നിവാസികൾക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന പ്രധാനമന്ത്രിയുടെ ആവാസ് അധികാർ യോജനയുടെ സുഗമമായ നടത്തിപ്പിന് ഈ നീക്കം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിലൂടെ അറിയിച്ചു

ഷിംല മണാലി അട്ടക്ക്മുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞരാത്രി കനത്ത മഞ്ഞൂർപ്പൂർച്ചയാണ് അനുഭവപ്പെട്ടത് മണ്ണിടിച്ചിലും ഹിമപാതവും ഉണ്ടാകാൻ പ്രിക്ക്ധ്യതയള്ളതിനാൽ വിനോദസഞ്ചാരികളും തദ്ദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കനത്ത മഞ്ഞ് വീഴ്ചയെ തുടർന്ന് ശ്രീനഗർ ജമ്മു ദേശീയ പാത അടച്ചു

നൂറുകണക്കിന് പ്രമുഖരെയാണ് ധാക്കയിൽ അന്ന് പാകിസ്ഥാൻ കൊലപ്പെടുത്തിയത് ഡോക്ടർമാർ എൻജിനീയർമാർ കലാകാരന്മാർ അധ്യാപകർ എന്നിവരെ കൂട്ടക്കൊലക്കിരയാക്കി ധാക്കയിലെ സ്മാരകത്തിൽ ഇന്നലെ ബംഗ്ലാദേശ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന എന്നിവർ ആദരാജ്ഞലിയർപ്പിച്ചു ധാക്കയിലെ ഇന്ദിരാ ഗാന്ധി കൾച്ചറൽ സെന്ററിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചു

സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകിട്ട് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും